പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

മടങ്ങി വരവ് നാളെ ആരംഭിക്കും

കേരളത്തിൽ ഇന്ന് പുതിയ കോവിഡ് ബാധിതരില്ല അവശേഷിക്കുന്ന എസ് എസ് എൽ

പാക്കേജ് പ്രകാരം ഭക്ഷ്യധാനൃങ്ങളും പാവപ്പെട്ട സ്ത്രീകൾക്കും മുതിർന്ന പൌരന്മാർക്കും കർഷകർക്കും ധനസഹായവും ലഭിക്കും

എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ചേർന്ന കർമ്മസമിതി യോഗത്തിൽ രോഗനിർണ്ണയം പരിശോധന എന്നീ കാര്യങ്ങളും ഇതിനു പുറമേ അവലോകനം ചെയ്തു

വന്ദേ ഭാരത് മിഷൻ എന്നതാണ് ദൌത്യത്തിന് നൽകിയിട്ടുള്ള പേര് വിമാനത്തിൽ ആദ്യ ആഴ്ച എത്തുന്നവരിൽ അധികവും കേരളത്തിലാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവങ്ങളിലാണ് പ്രവാസികൾ പേരാണ് ആദ്യ അഞ്ച് ദിവസങ്ങളിലായി എത്തുന്നത്

്ഗൾഫ് രാജ്യങ്ങളിൽ നിന്നു മാത്രം മൂന്നു ലക്ഷത്തിലധികം പേരാണ് തിരികെയെത്താൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിനു പുറമേ അമേരിക്ക യുകെ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും

യാത്രക്കാരെ പരിശോധിക്കാനായി തെർമൽ സ്കാനർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവരെ താമസിപ്പിക്കുന്നതിനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളും ജില്ലകളിൽ ഒരുക്കുന്നു വീടുകൾ തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് താമസ സൌകര്യം ഒരുക്കുന്നത്

ദൌതൃത്തിന്റെ ഭാഗമായ ഒന്നാംഘട്ട ഒഴിപ്പിക്കലിനായി നാവികസേനയുടെ ീജലാശ്വ മഗർ എന്നീ കപ്പലുകൾ മാലദ്വീപുകളിലേക്ക് പുറപ്പെട്ടു

ഏഴുപേർക്ക് രോഗം ഭേദമായി

അവശേഷിക്കുന്ന എസ് എസ് എൽ

വിവരങ്ങൾ സുരക്ഷിതമാണെന്നും സ്വകാര്യതയ്ക്ക് വെല്ലുവിളിയല്ലെന്നും സർക്കാർ വൃക്തമാക്കി

അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ മദ്യശാലകൾ പ്രവർത്തനം ആരംഭിച്ചു

കഴിഞ്ഞ മാസം വിരമിച്ച അതനു ചക്രബർത്തിക്കു പകരക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്

ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനും കേന്ദ്രം ഉത്തരവിട്ടു

ലോക്ഡൌണിനെ തുടർന്നുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പാക്കേജെന്ന് കർണ്ണാടക മുഖൃമന്ത്രി ബി

ഇ ഇ